വന്ദേ ഭാരത് ദൌതൃത്തിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നു

കോവിഡ് ചികിത്സയ്ക്കായി രണ്ട് മരുന്നുകളുടെ ക്സിനിക്കൽ പരീക്ഷണത്തിന് ഡ്രഗ്ഗ് കൺട്രോളർ ജനറലിന്റെ അനുമതി

ഇരുവരും കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് വന്ന പ്രവാസികൾ

രോഗ ലക്ഷണങ്ങൾകങ്ങെത്തുന്ന യാത്രക്കാരെ ഉടൻ തന്നെ ആംബുലൻസുകളിൽ ്അതതു ജില്ലകളിലെ കാറന്റൈൻ കേന്ദ്രത്തിലേക്കായിരീക്കും മാറ്റുക

ചെന്നൈയിൽ രണ്ട് വിമാനങ്ങൾ ഇന്ന് പുലർച്ചെ എത്തി

ജലാശ്വാ എന്ന കപ്പൽ നാളെ കൊച്ചി തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് നാവികസേന കേന്ദ്രങ്ങൾ അറിയിച്ചു

മഗർ എന്ന കപ്പലാണ് ഇന്തൃക്കാരെ ഒഴിപ്പിക്കാൻ എത്തിയിട്ടുള്ളത് മാലദ്വീപിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട അവസാനവട്ട ഒരുക്കത്തിലാണ്

നിലവിൽ ദൌത്യത്തിലേർപ്പെട്ടിരിക്കുന്ന ഐ

മഗർ എന്നീ കപ്പലുകൾ അടുത്ത ആഴ്ച മാലദ്വീപിൽ നിന്നും തൂത്തുക്കുടിയിലേയ്ക്ക് ആളെ എത്തിക്കും

കൂടുതൽ വിവരങ്ങളൂമായി നേന്ദ്രമോഹൻ

രോഗിയുടെ ആരോഗൃനില അടിസ്ഥാനമാക്കി അപകടമില്ലെങ്കിൽ കോവിഡ് പരിശോധന നടത്താതെ തന്നെ ഡിസ്ചാർജ് ചെയ്യാം കോവിഡ് സുരക്ഷാ കേന്ദ്രങ്ങളിൽ കഴിയുന്ന നേരിയ രോഗ ലക്ഷണം മാത്രമുള്ളവർ പതിവായി ശരീരോഷ്മാവ് പരിശോധനയ്ക്കും നാഡീ പരിശോധനയ്ക്കും വിധേയമാകേണ്ടതുണ്ട് പത്ത് ദിവസമായി രോഗലക്ഷണങ്ങളില്ലാത്തതും മൂന്ന് ദിവസമായി പനിയില്ലാത്തവരുമായ രോഗികളെ വിട്ടയയ്ക്കാം

ഇങ്ങനെ വിട്ടയയ്ക്കപ്പെടുന്നവർ ഏഴ് ദിവസം വീട്ടിൽ ഐസൊലോ ഷനിൽ കഴിയണം ഈ വേളയിൽ പനിയോ ചൂമയോ ശ്വാസതടസമോ ഉണ്ടായാൽ വീണ്ടും കോവിഡ് സുരക്ഷാ കേന്ദ്രങ്ങളെയോ സംസ്ഥാന ഹെൽപ് ലൈനെയോ ബന്ധപ്പെടേണ്ടതാണ്

അതേസമയം മൂന്ന് ദിവസത്തിനുള്ളിൽ പനി കുറയാത്തതും ഓക്സിജൻ നൽകേണ്ടി വരുകയും ചെയ്യുന്ന രോഗിയെ രോഗലക്ഷണം പൂർണമായും മാറിയിട്ടേ വിടുകയുള്ളു കടുത്ത രോഗബാധയുള്ളവരെ ആർ

ആർ പരിശോധനയ്ക്ക് വിധേയരാക്കി രോഗം ഭേദമായെന്ന് ഉറപ്പാക്കിയിട്ടേ വീട്ടിലേയ്ക്ക് വിടുകയുള്ളു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഫൈറ്റോ ഫാർമസ്യൂട്ടിക്കൽ ഫാവി പിറവിർ എന്നീ മരുന്നുകളുടെ ക്സിനിക്കൽ പരീക്ഷണത്തിനാണ് ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിക്ക് അനുമതി ലഭിച്ചിട്ടുള്ളത് മരുന്നുകളുടെ പരീക്ഷണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങുമെന്ന് സി

ഐ ആർ

പദ്ധതി പ്രകാരം എല്ലാ സംസ്ഥാന ങ്ങളിലും ആവശൃത്തിനനുസരിച്ച് ഭക്ഷൃ ധാനൃങ്ങൾ എത്തുന്നു ണ്ടെന്ന് സർക്കാർ ഉറപ്പു വരുത്തുമെന്നും ശ്രീ

സർവീസ് പുനരാരംഭിക്കുമ്പോൾ സാമൂഹിക അകലം പാലിച്ചായിരിക്കും യാത്രക്കാർക്ക് വിമാനത്തിൽ സഞ്ചരിക്കാനാവുകയെന്നും മന്ത്രി വൃക്തമാക്കി വിമാനത്താവളങ്ങൾ പ്രവർത്തനം കൃപ്പൂണ്ടും തുടങ്ങിയാൽ നീണ്ട ക്യൂ അനുവദിക്കില്ല

തമിഴ്നാട്ടിൽ രോഗബാധി തരുടെ എണ്ണം ആറായിരത്തിലധികമായി

ദുബായ് കോഴിക്കോട് വിമാനത്തിലും അബുദ്യൂബി കൊച്ചി വിമാനത്തിലും വന്നവരാണ് ഇവർ

ഒരു റിപ്പോർട്ട്

കൊറോണ പരിശോധനയ്ക്കും സൌകര്യമേർ പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇതിനകം ഒമ്പതിനായിരം പരിശോധ നകൾ നടത്തി കഴിഞ്ഞു

തൊഴിലാളികളു മായി ട്രെയിനുകൾ എത്തിച്ചേരാൻ പശ്ചിമബംഗാൾ സർക്കാർ അനുവദിക്കാത്തത് നീതികേടാണെന്നും ശ്രീ